കോൺഗ്രസ് ബി

മത്സരം ഇന്ന് അഹമ്മദാബാദിൽ

കുട്ടികളുടെ പരീക്ഷാസമ്മർദ്ദം ലഘൂകരിച്ച് പ്പരീക്ഷകളെ അഭിമുഖീകരിക്കാ നുള്ളള ആത്മവിശ്വാസം പക്താനിയാണ് പരീക്ഷാ പേ ചർച്ച സംഘടിപ്പിക്കുന്നത്

പരിപാടിയിൽ പേര് രജിസ്റ്റർ ചെയ്യാനുള്ള് അവസാന ദിവസം ഇന്നാണ്

വെബ്സൈറ്റിൽ നിർദേശിക്കുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിനും അവസരമുണ്ട് വിജയികളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികൾക്ക് പ്രധാനമന്ത്രിയോട് നേരിട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ അവസരം ലഭിക്കും പരീക്ഷ പേ ചർച്ചയുടെ നാലാം പതിപ്പാണ് ഇക്കുറി സംഘടിപ്പിക്കുന്നത്

മൂന്നുദിവസത്തെ സംസ്ഥാന സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്നലെ വാരാണസിയിൽ എത്തിയ രാഷ്ട്രപതി ഗംഗാ ആരതിയിൽ പങ്കെടുക്കുകയും കുടുംബാംഗങ്ങളോടൊപ്പം കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ചെയ്തു ഇന്ന് സോൻഭദ്ര ജില്ലയിലെ ചപ്കി മേഖലയിൽ ആയിരക്കണക്കിന് ആദിവാസികൾ പങ്കെടുക്കുന്ന വനവാസി സമാഗമത്തിലും ആദിവാസികളുടെ സാംസ്കാരിക പൈതൃകും സംരക്ഷിക്കുന്നതിനും അവരുടെ സാമൂഹിക വികസനത്തിന്റുമൂട്ടായി പ്രവർത്തിക്കുന്ന സേവ കുഞ്ച് ആശ്രമത്തിലെ പുതിയും കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവ്വഹിക്കും

അസമിൽ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ രാജ്നാഥ് സിംഗ് എന്നിവർ ഇന്ന് എത്തുന്നുണ്ട് നന്ദിഗ്രാമിൽ പ്രചാരണത്തിനിടെ കാലിന് പരിക്കേറ്റ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി വീൽ ചെയറിലിരുന്ന് പ്രചരണത്തിന് നേതൃത്വം നൽകുമെന്ന് തൃണമൂൽ കോൺഗ്രസ് വക്താവ് അറിയിച്ചു

കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് ഉച്ചയോടെ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട് ബിജെപി സ്ഥാനാർത്ഥികളെയും ഇന്ന് അറിയാം അതിനിടെ എൽ

എഫ് പ്രചാരണം സജീവമാക്കി ചുവരെഴുത്തിന്റെയും മണ്ഡലം കൺവെൻഷനുകളുടേയും തിരക്കുകളിലേക്ക് കടന്നു മലമ്പുഴ സീറ്റുകൂടി ഉൾപ്പെട്ടതോടെ യു ഡി

സുരേന്ദ്രൻ ഡൽഹിയിൽ അറിയിച്ചു

സേന നടപടികളിലാണ് ഭീകരവാദി കൊല്ലപ്പെട്ടത്

ദൂരദർശനും പരിപാടി സംപ്രേക്ഷണം ചെയ്യും

ബി

വിവിധ ഏജൻസികളുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കേണ്ടതിനിലാണ് കേസ് സി ബി ഐയ്ക്ക് കൈമാറിയത് അനുയോജ്യരായ ഉദ്യോഗാർത്ഥികളെ ി ് തെരഞ്ഞെടുക്കാനുള്ള നടപടിക്രമങ്ങളിൽ യാതൊരു അഴീമൃതിയും അനുവദിക്കില്ലെന്ന് കരസേന വ്യക്തമാക്കി

ഇതുപ്രകാരം ഏത് ടൂറിസ്റ്റ് വാഹന ഉടമയ്ക്കും രാജ്യത്ത് എവിടെയും വാഹനം ഓടിക്കുന്നതിനുള്ള അനുമതിയ്ക്കായി ഓൺലൈനായി അപേക്ഷിക്കാം

വിശദാംശങ്ങളുമായി ആമിന നജുമ

ലോകത്തെ മൂന്നിൽ രണ്ട് രാജൃങ്ങൾ പ്പേർന്ന് വാക്സിൻ വിതരണം സുഗമമാക്കുന്നതിനായി ന്ടുപ്പാക്കുന്ന ആഗോള കൂട്ടായ്മയാണ് കോവാക്സ് ബംഗ്ലാദ്ദേശ് മ്യാൻമർ നേപ്പാൾ ഭൂട്ടാൻ മാൽദീവ്സ് മൌറിഷ്യിക്സ് ശ്രീലങ്ക സീഷെൽസ് ബഹ്റൈൻ ഒമാൻ അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾക്ക് ഇന്ത്യയുടെ വാക്സിൻ മൈത്രി പദ്ധതിയിലൂടെ കോവിഡ് വാക്സിൻ ലഭിച്ചു വിവിധ രാജ്യങ്ങൾക്ക് വാക്സിൻ എത്തിക്കുന്നതിനായി ഒന്നര മാസം മുൻപ് ഇന്ത്യ നടപ്പാക്കിയ പദ്ധതിയാണ് വാക്സിൻ മൈത്രി

കൂടാതെ മറ്റ് പലരാജ്യങ്ങളും ഇന്ത്യൻ നിർമിത വാക്സിൻ സൌജന്യമായും കോവാക്സ് സൌകര്യത്തിലൂടെയും വിതരണംചെയ്യുന്നുണ്ട്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

എന്താണ് കോവിഡെന്നും എങ്ങനെയാണ് കോവിഡ് സാഹചര്യത്തെ നേരിട്ടതെന്നുമുള്ള കാരൃങ്ങളെല്ലാം ഗ്രന്ഥ രൂപത്തിൽ പ്രസിദ്ധീകരിക്കാനാണ് തീരുമാനം ഈ രേഖകൾ ഉടൻ പ്രസിദ്ധീകരിക്കുമെന്നും മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുടെ കൊറോണ സംബന്ധിച്ച ഉപദേശ്ഷ്ഠാവ് ഡോ

വരുംകാലത്ത് ഇത് മറികടക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് മഹാരാഷ്ട്ര സർക്കാർ രേഖകൾ ശേഖരിക്കാൻ തീരുമാനിച്ചത് പൊതുജനങ്ങൾക്കും മെഡിക്കൽ രംഗത്തുള്ളവർക്കും ആരോഗൃരംഗത്തുള്ളവർക്കും ഇത് പ്രയോജനപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്

ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ട് ഇന്ത്യയെ എട്ട് വിക്കറ്റിനാണ് പരാജയ്ക്പ്പെടുത്തിയത്

ദക്ഷിണാഫ്രിക്കയയ്ക്ക് എതിരെ നടക്കുന്ന ഇന്ത്യയുടെ നാലാം ഏകദിന പരമ്പരയിലാണ് മിതാലി ഈ നേട്ടം കൈവരിച്ചത്